പൈലറ്റ് പ്ലാന്റ് കോഴിക്കോട്ട് ഇന്നുപുലർച്ചെ അന്തരിച്ച കെ

സി വർക്കിംഗ് പ്രസി ഡണ്ട് എം ഐ ഷാന വാ സിന്റെ ഭൌതിക ശ രീരം ഉച്ച കഴിഞ്ഞ് കൊച്ചിയിൽ കൊണ്ടുവരും

ശബരിമലയിലെ നിരോധനാജ്ഞയെപറ്റി വിശദീകരണം നൽകാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു നിരോധനാജ്ഞ ആരെയൊക്കെ ബാധിക്കുമെന്ന കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് കോടതി ആവശ്യപ്പെ ട്ടിരിക്കുന്നത് ഭക്തരെയും പ്രതിഷേധക്കാരെയും എങ്ങനെ തിരി ച്ചറിയാനാകുമെന്നും വിശദീകരിക്കണം

ഉച്ചയ്ക്ക് ഒന്നേമുക്കാലിന് കോടതി കേസ് വീണ്ടും പരിഗ ണിക്കും സ്വകാര്യ വാഹനങ്ങളെ പമ്പവരെ പോകാൻ അനുവദിക്കാതെ പൊലീസും ഉദ്യോഗസ്ഥരും തീർത്ഥാടകരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി ശബരിമലയ്ക്ക് ഇത് ഒരിക്കലും ഗുണകരമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമലയിലേക്ക് ഭക്തരുടെ വരവ് കുറയുന്നത് പൊലീസും ഗവൺമെന്റും ഏർപ്പെടുത്തിയ നിയന്ത്ര ണങ്ങൾകൊണ്ടാണെന്നും പൊൻരാധാകൃഷ്ണൻ പറഞ്ഞു സ്വകാര്യ വാഹനങ്ങളെ പമ്പവരെ പോകാൻ അനുവദിക്ക ണമെന്നാവശ്യപ്പെട്ട പൊൻരാധാകൃഷ്ണനോട് ഉത്തരവ് എഴുതി നൽകിയാൽ അപ്രകാരം ചെയ്യാമെന്ന് എസ് പി യതീഷ് ചന്ദ്ര മറു പടി നൽകി നിലയ്ക്കലിൽ നിന്ന് പമ്പവരെ പരിസ്ഥിതിലോല മേ ഖലയാണെന്നും അവിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾ അനുവ ദിച്ചാൽ ഉണ്ടാകാവുന്ന കുഴപ്പങ്ങൾക്ക് ആര് ഉത്തരവാദികളാകു മെന്നും യതീഷ് ചന്ദ്ര കേന്ദ്രമന്ത്രിയോട് ചോദിച്ചു ഉത്തരവ് എഴുതി നൽകാൻ അധികാരമില്ലെന്ന് അറിയിച്ച പൊൻരാധാകൃഷ്ണൻ പൊലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് നിലയ്ക്കലിൽ നിന്ന് കെ

സി ബസ്സിലാണ് പമ്പയിലേക്ക് പോയത് ശബരിമലയിലെ സ്ത്രീപ്രവേശനം സംബന്ധിച്ച സുപ്രീംകോ ടതിവിധിമൂലം ഉണ്ടായ സാഹചര്യങ്ങൾ നേരിടാൻ നിയമ നിർമ്മാണം കൊണ്ടുവരുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ ഗവൺമെന്റിന് നിർദേശം നൽകണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണി ഗവർണറോട് ആവശ്യപ്പെട്ടു ആചാ രാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതരത്തിൽ നിയമനിർമ്മാണം നട ത്താൻ സംസ്ഥാന ഗവൺമെന്റാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടേ ണ്ടതെന്ന് മാണി വൃക്തമാക്കി

തീർത്ഥാടകർക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കിയിട്ടില്ലെന്നും മാണി കുറ്റപ്പെടുത്തി

എം മാണിയുടെ നേതൃത്തിൽ പി ജെ ജോസഫ് ജോസ് കെ മാണി തുടങ്ങിയവരും പ്രമുഖ കേരള കോൺഗ്രസ് നേതാ ക്കളും രാജ്ഭവനിലെത്തിയാണ് ഗവർണർക്ക് മുന്നിൽ ഇക്കാര്യ ങ്ങൾ അവതരിപ്പിച്ചത് ശബരിമല വിഷയത്തിൽ റിമാന്റിൽ കഴിയുന്ന ബി

ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞ തുൾപ്പെടെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെ തിരെ പൊലീസ് കേസെടുത്തത് അതേസമയം കണ്ണൂരിൽ പൊലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കെ സുരേന്ദ്രനെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഇന്ന് പത്ത നംതിട്ട കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാലും കണ്ണൂരിലെ കേസിൽകൂടി ജാമ്യമെടുത്താലെ സുരേന്ദ്രന് പുറത്തിറങ്ങാനാവൂ കോഴിക്കോട്ട് യുവമോർച്ചാ സംസ്ഥാന സമിതിയിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിലെടുത്ത കേസ് റദ്ദാക്കണമെന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി

നേരത്തെ രണ്ട് തവണ കോടതി കേസ് നീട്ടിവെച്ചിരുന്നു ഭാരതീയ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കേരള ഗവൺമെന്റ് തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ബി

എസ് ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി എസ് ദൊരൈരാജ് പറഞ്ഞു നാടിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഓരോരുത്തരും ഇതിനെതിരെ രംഗത്തുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ശബരിമലയിൽ അരവണ നിർമ്മാണം നിർത്തിവെച്ചതായി റിപ്പോർട്ട്

ഇതിൽ ഒരു ലക്ഷം ടിൻ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിറ്റുതീർന്നത് അപ്പം നിർമ്മാണം നേരത്തെ തന്നെ നിർത്തിയിരുന്നു ഖരമാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏഴ് പ്താന്റുകൾക്ക് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം ലഭിച്ചു കോഴി ക്കോട്ടായിരിക്കും അഞ്ച് മെഗാവാട്ട് ശേഷിയോട്കൂടിയ ആദ്യ പ്താന്റ് സ്ഥാപിക്കുക

ടി അടിസ്ഥാനത്തിലായിരിക്കും ഏഴ് ജില്ലകളിലും ഖരമാലിന്യ സംസ്കരണ പ്താന്റുകൾ പ്രവർത്തിക്കു ന്നത് സംസ്ഥാനത്തെ ആശ്രിത നിയമനത്തിന് കുടുംബത്തിന്റെ വാർഷിക വരുമാനപരിധി എട്ട് ലക്ഷം രൂപയാക്കി ഉയർത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു നിലവിൽ ഗവൺമെന്റ് ജീവന ക്കാരുടെ ആശ്രിത നിയമനത്തിന് ആറ് ലക്ഷം രൂപയായിരുന്നു വരുമാന പരിധി

സി വർക്കിംഗ് പ്രസിഡന്റ് എം ഐ ഷാനവാസ് എം പിയുടെ ഭൌതികദേഹം ഉച്ചകഴിഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താ വളത്തിൽകൊണ്ടുവരും മൂന്നുമണിമുതൽ എറണാകുളം ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെക്കും കലൂർ തോട്ടത്തും പടി പള്ളിയിൽ നാളെ രാവിലെ പത്തിനാണ് ഖബറടക്കം

ഈ മാസം രണ്ടിന് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാ യ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അണുബാധയെ തുടർന്ന് വഷ ളാവുകയായിരുന്നു

കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ദുഖത്തിൽ പങ്കുചേരുന്നതായി രാഹുൽ ട്വിറ്ററിൽ അറിയിച്ചു ഷാനവാസിന്റെ നിര്യാണത്തിലൂടെ പ്രതിസന്ധികളിൽ തള രാത്ത ശക്തനായ യോദ്ധാവിനെയാണ് കോൺഗ്രസിന് നഷ്ടമാ യതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിലും ഷാന വാസ് അതിശക്തമനായ പോരാളിയായിരുന്നുവെന്ന് ആന്റണി കൊച്ചിയിൽ അനുസ്മരിച്ചു കേരളത്തിന്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നേതാവാ യിരുന്നു ഷാനവാസെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു പാർല മെന്റിൽ ഷാനവാസിന്റേതെന്ന് ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അനുസ്മരിച്ചു പൊതുരംഗത്തെ വലിയ നഷ്ടമാണ് ഷാനവാസിന്റെ വിയോ ഗമെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു സഹോദരനെയാണ് തനിക്ക് നഷ്ടമായതെന്ന് പ്രതിപക്ഷനേ താവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു

സുധീരൻ കെ

വേണുഗോപാൽ എം പി തുട ങ്ങി ഒട്ടേറെ നേതാക്കൾ അനുശോചിച്ചു

സി സി മൂന്നുദിവസത്തെ ദുഖാചരണം പ്രഖ്യാപിച്ചിട്ടു ണ്ട് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ

സി സി വൈസ് പ്രസി ഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്

സി സി വർക്കിംഗ് പ്രസിഡന്റായി ഷാനവാസിനെ നിയമിച്ചത്

മാനവശേഷി വികസന മന്ത്രാലയം സ്ഥിരം സമിതി അംഗം ന്യൂനപക്ഷ മന്ത്രാലയം ഉപദേശകസമിതി അംഗം തുട ങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനം ഇന്ന് ആരം ഭിക്കും

കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജു കളുടെ അത്ലറ്റിക് മീറ്റ് ഇന്ന് കോഴിക്കോട്ട് നടക്കും

ഉച്ചയ്ക്ക് ശേഷം സ്പോർട്സ് കൌൺസിൽ പ്രസിഡണ്ട് ടി പി ദാസൻ പരി പാടി ഉദ്ഘാടനം ചെയ്യും ഐ എസ് എല്ലിൽ രണ്ടാം അന്താരാഷ്ട്ര ഇടവേളയ്ക്കുശേഷം മത്സരം ഇന്ന് പുനരാരംഭിക്കും

ഐ

പി രാജേന്ദ്രൻ കണ്ണൂരിൽ വാർത്താസമ്മേ ളനത്തിൽ അറിയിച്ചു

അഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കലാപത്തിൽ രണ്ടുപേരെ കൊന്ന കേസിൽ ഒരാൾക്ക് ഡൽഹി ഹൈക്കോടതി വധശിക്ഷ വിധിച്ചു

യശ്പാൽ സിംഗിനാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി അജയ് പാണ്ഡെ വധശിക്ഷ വിധിച്ചത്

വിധിയെ കോൺഗ്രസ് വക്താവ് അഭിഷേക് സിങ്വി സ്വാഗതം ചെയ്തു

വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു

ചുമട്ട് തൊഴിലാളി ക്ഷേമപദ്ധതി സംസ്ഥാനവ്യാപകമായി നട പ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് ആന്റ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ വൈസ് പ്രസിഡണ്ട് കെ വി രാഘവൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് തൊഴിൽവകുപ്പ് മന്ത്രിയ്ക്കും ബോർഡ് ചെയർമാനും നിവേദനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് പേരാമ്പ്ര കല്ലോട് ഡി വൈ എഫ് ഐ പ്രവർത്ത കന് വെട്ടേറ്റു

സിദ്ധാർത്ഥിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതായി പൊലീസ് അറിയിച്ചു